അനിവാര്യമെന്ന് രാജ്യർക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതിരോധ രംഗത്ത് മറ്റു രാജ്യങ്ങളെ സഹായിക്കാൻ കഴിയണമെന്നും ക്രേന്ദ്രമന്ത്രി

അവലംബിക്കുന്നത് ശാസ്ത്രീയ ഓഡിറ്റ് എന്നും മന്ത്രി കെ

ചുവപ്പു കോട്ടയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും നാളെ നടക്കുന്ന സാതന്ത്യ ദിനാഘോഷങ്ങളോട് അനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയി പൃത്ാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും സ്ഥാത്ത്ത്യ ദിന ആഘോഷങ്ങൾ കണക്കിലെടുത്ത് ദേശ്വീയി തലസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്

ചുവപ്പു കോട്ടയിൽ എത്തുന്ന എല്ലാ അതിഥികൾക്കും ആഭ്യന്തര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ച കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു

ആത്മനിർഭരത സപ്താഹിന്റെ ഭാഗമായി പ്രതിരോധ പൊതുമേഖലാ ഓർഡിനൻസ് ഫാക്ടറി ബോർഡിന്റെയും പുതിയ ഉൽപ്പന്നങ്ങൾ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീ

ഇന്തൃയുടെ പ്രതിരോധ ആവശൃങ്ങൾക്കായി വിദേശ ഗവൺമെന്റുകളെയും പ്രതിരോധ ഉൽപ്പന്ന വിതരണ ഏജൻസികളെയും ആശ്രയിക്കാനാവില്ലെന്നും മാത്രം ശ്രീ രാജ്നാഥ് സിങ്ങ് പറഞ്ഞു

് ആരോഗ്യപ്രവർത്തകർ അടക്കമുള്ളവർക്ക് സമർപ്പിച്ചർ ്രമഗ്ാ രക്തദാന ക്യാമ്പ് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ്ഹർഷ്വർദ്ധനൻ ന്യൂഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഔഫ് മെഡിക്കൽ സയൻസസിൽ ഉദ്ഘാടനം ചെയ്തു കോവിഡിനെതിരെ പോരാടുന്നവരെ കേന്ദ്ര മന്ത്രി ചടങ്ങിൽ ആദരിച്ചു

രക്തദാതാക്കൾക്കുള്ള സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു

വിദ്യാഭ്യാസം എല്ലാവർക്കും എന്നതാണ് പുതിയ നയത്തിലേ അടിസ്ഥാനമെന്ന് കേന്ദ്ര മന്ത്രി പറഞ്ഞു നിലവിൽ മൂന്ന് കോടി വിദ്യാർത്ഥികളാണ് കോളേജ് വിദ്യാഭ്യാസത്തിനു കീഴിലുള്ളത് ഇത് ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യം എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

പി തീരുമാനിച്ചിട്ടുണ്ട്

ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരമുള്ള അന്താരാഷ്ട്ര മാർഗരേഖ അനുസരിച്ചാണ് ഇവിടെയും കോവിഡ് മരണം സ്ഥിരീകരിക്കുന്നത് ഇതനുസരിച്ച് കോവിഡ് രോഗം മൂർച്ഛിച്ച് അതുമൂലം അവയവങ്ങളെ ബാധിച്ച് അർത്തരാവസ്ഥയിലെത്തി മരണമടയുന്നതിനെ മാത്രമേക്ക് കോവിഡ് മരണത്തിന്റെ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കഴിയൂ കോവിഡ് മരണത്തിൽ ശാസ്ത്രീയമായ ഓഡിറ്റാണ് കേരളം അവലംബിക്കുന്നത് എന്നും മന്ത്രി വൃക്തമാക്കി പ്രാ്ഥമിക പരിശോധനയിൽ കോവിഡ് പോസിറ്റീവായി സംശയിക്കപ്പെടുന്ന ഉടനെ കോവിഡ് മരണങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല കോവിഡ് സ്ഥിരീകരിച്ച റിപ്പോർട്ട് ലഭ്യമാകുമ്പോൾ മാത്രമേ കോവിഡ് മരണമായി കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അവർ പറഞ്ഞു

എ

യും ഇസ്രായേലും സമ്മതിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാറിന്റെ ഭാഗമായി പലസ്തീൻ പ്രദേശമായ വെസ്റ്റ് ബാങ്കിന്റെ ചില പ്രദേശങ്ങൾ കൂടി പിടിച്ചെടുക്കാനുള്ള തീരുമാനം ഇസ്രായേൽ നിർത്തിവയ്ക്കും

യും ഇസ്രായേലും തീരുമാനിച്ചതായി പ്രി്സിഡ്ന്റ് ട്രംപ് പറഞ്ഞു

സംഘമാണ് അപകടത്തിനിടയാക്കിയ ക്ടാർണങ്ങൾ സംബന്ധിച്ച് സംഘം വിശദമായി അന്വേഷിച്ച് അഞ്ചു മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുഐ ഭാവിയിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും സംഘം ശുപാർശകൾ സമർപ്പിക്കും

ഇന്ന് രാവിലെ പോലീസ് സംഘത്തിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു സംഭവത്തിൽ രണ്ട് പോലീസുകാർ വീരമൃത്യു വരിച്ചു ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു പ്രദേശത്ത് സുരക്ഷാ സേന തെരച്ചിൽ തുടരുകയാണ്

അദ്ദേഹത്തിനു പുറമെ കലക്ടറുടെ ഓഫീസിലെ അസി

ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കരിപ്പൂർ വിമാന ദുരന്തത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിനെ കളക്ടറും മറ്റ് ഉദ്യോഗസ്ഥരും കാറന്റീനിലായിരുന്നു